ലോക നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ചു

രണ്ട് സംസ്ഥാനങ്ങളിലും പരസ്യ പ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു ഇന്ന് നിശ്ശബ്ദ പ്രചാരണമാണ് വിശദാംശങ്ങളുമായി സുവർണ്ണ

വോട്ടർമാർ ക്യൂവിൽ നിൽക്കുന്നത് ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ആപ്പും സജ്ജീകരിച്ചതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

സുതാര്യവും നീതിയുക്തിവുമായ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ഹൂർത്തിയായതായി അധികൃതർ അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി രാജ്യമെമ്പാടും ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിലെ സൻസദ് ഭവൻ പുൽത്തകിടിയിൽ അംബേദ്ക്കറിന്റെ പ്രതിമക്ക് മുൻപിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുഷ്പാർച്ചന നടത്തി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ലോക്സഭ സ്പീക്കർ സുമിത്ര മഹാജൻ കേന്ദ്ര മന്ത്രി തവർചന്ദ് ഗെഹലോട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മറ്റ് പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ ഡോ

രാജ്യത്ത് അതിർത്തിയിൽ ഭീകരർ കൊലപ്പെടുത്തീയവരേക്കാൾ കൂടുതൽ പേർ റോഡിലെ കുഴികൾമൂലമൂണ്ടായ അപകടത്തിലാണ് മരിച്ചതെന്നും ഇത് സ്ഥ അംഗീകരിക്കാനാവില്ലെന്നും കോടതി വൃക്തമാക്കി റോഡുകൾ നല്ലരീതിയിൽ നിലന്ദിർത്താ്ൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും ജസ്റ്റീസ് മദൻ ബി ലോകൂർ അദ്ധ്യക്ഷനായ് ബഞ്ച് ചൂണ്ടിക്കാട്ടി റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പ്ടരമോന്നതകോടതി നിർദ്ദേശിച്ചു വിഷയത്തിൽ വാദം ക്ടേൾക്കുന്നത് കോടതി അടുത്തമാസത്തേക്ക് മാറ്റി

ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ കണക്ക് പ്രകാരമാണിത്

പത്ത് ദശലക്ഷം ഫോളോവേഴ്സുമായി യു

രാജ്യത്തുടനീളമുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ സിനിമാ തീയറ്റേറുകൾ മാളുകൾ ഫാക്ടറികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് അമ്രപാലി ഗ്രൂപ്പിന്റെ സ്വത്തുവകകൾ നോയിഡയിലും ഗ്രെയ്റ്റർ നോയിഡയിലുമുള്ള ഇവരുടെ നാല് കോർപ്പറേറ്റ് ഓഫീസുകളും ജപ്തി ചെയ്ത് ലേലം ചെയ്യാൻ പരമോന്നത് കോടതി ഡെബ്റ്റ് റിക്കവറി ട്രിബ്യൂണലിനോട് ആവശ്യപ്പെട്ടു കോടതി നിർദ്ദേശം പാലിക്കാതെ വഞ്ചനയും കള്ളത്തരവുമാണ് കമ്പനി ചെയ്തതെന്ന് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര യു

്സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി എടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഡിജിപി ഒ

സിംഗ് അറിയിച്ചു

അവിടെ കുഴപ്പമുണ്ടാക്കുന്ന സാമൂഹിക വിരുദ്ധരെ തടയാനാണ് നിരോധനാജ്ഞയെന്നും ഭക്തർക്ക് ഒരു വിലക്കുമില്ലെന്നും മന്ത്രി പറഞ്ഞു ശബരിമല വിഷയത്തിൽ മൂന്ന് എം എൽ എമാരുടെ സത്യഗ്രഹം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് ഇടപെടണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല സഭയിൽ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ സ്പീക്കറും നടപടിയെടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു

വൈകിട്ട് ആറിന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉത്ഘാടനം ചെയ്യും

വിഖ്യാത ഇറാനിയൻ സംവിധായകൻ മജീദ് മജീദിയാണ് ജൂറി ചെയർമാൻ

ഇത്തവണ ക്യൂവിന് പകരം കൂപ്പൺ സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി ക്കഴിഞ്ഞു

ഇന്ത്യയിലെ സുപ്രധാനമായ പാപ്പരത്ത നിയമാവലി രാജ്യത്തെ വിദേശ നിക്ഷേപകർക്ക് അനുകൂല സാഹചര്യമാണ് ഒരുക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു

അടുത്ത വർഷം ജനുവരി അവസാനത്തോടെ ഇത് നടപ്പാക്കുമെന്ന് ബാങ്കിന്റെ അറിയിപ്പിൽ പറയുന്നു

എണ്ണ് ഉൽപാദനം വിതരണം ആവശ്യം എന്നിവ സംബന്ധിച്ച വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും ഇതിനിടെ എണ്ണ് ഉൽപാദനം കുറയ്ക്കരുതെന്നും ആഗോള എണ്ണവില ക്ടുറഞ്ഞു തന്നെ ഇരിക്കണമെന്നും യു

എണ്ണ ഉൽപാദനം കുറയ്ക്കുന്നത് സംബന്ധിച്ച തീരുമാനത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്

നാല് വർഷക്കാലമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് സ്വീഡനിലെ റിംമ്പോയിലാണ് ചർച്ച യുദ്ധവിരാമവും മനുഷ്യസ്നേഹത്തിന്റെ പാത തുറക്കലുമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഇരുവിഭാഗങ്ങളും വ്യക്തമാക്കി

തുടക്കത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് രണ്ട് ഓപ്പണർമാരുടെ വിക്കറ്റുകൾ നഷ്ടമായി കെ

ആകെ നാല് ടെസ്റ്റ് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്

വൈകിട്ട് അഞ്ചിനാണ് മത്സരം

രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ മലേഷ്യ സമനില പാലിച്ചു ഇത്തോള്ട് ഗ്രൂപ്പിൽ പാക്കിസ്ഥാൻ മൂന്നാം സ്ഥാനത്തും മലേഷ്യ ന്റൂലാം സ്ഥാനത്തുമാണ്